ത വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിനും ക്ഷേമത്തിനും പിന്തുണ നൽകുന്ന മനോദർപ്പൺ പദ്ധതിയ്ക്ക് ഇന്ന് തുടക്കമാകും

വിശദംശങ്ങൾ നൽകുന്നത് ആകാശവാണി കൊച്ചി ലേഖകൻ എൻ സി ജയചന്ദ്രൻ

വീഡിയോ കോൺഫറൻസിംഗ് വഴി സംഘടിപ്പിക്കുന്ന യോഗത്തിൽ മന്ത്രിമാരായ കെ കെ ശൈലജ എ സി മൊയ്തീൻ വകുപ്പ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുക്കും ജനപ്രതിനിധികൾക്ക് പുറമെ തദ്ദേശ സ്ഥാപന പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും രുമ തിരുവനന്തപുരത്തെ കോവിഡ് കണ്ടെയ്ൻമെന്റ് സോൺ ഒന്നിലെ ഇടവ മുതൽ പെരുമാത്തുറ വരെ രോഗവ്യാപനം തടയാൻ വിപുലമായ നടപടികൾക്ക് തുടക്കമായി

അവശ്യ സാധനങ്ങളും സേവനങ്ങളും എല്ലായിടത്തും ലഭ്യമാക്കാൻ നടപടിയെടുത്തിട്ടുണ്ട് അവശ്യ സാധനങ്ങളുമായി സോണിലെ എല്ലാ പ്രദേശത്തും സിവിൽ സപ്പൈസിന്റെയും ഹോർട്ടി കോർപ്പിന്റെയും കെപ്കോയുടെയും സഞ്ചരിക്കുന്ന വിൽപ്പന ശാലകൾ എത്തിച്ചേരും ടെലിമെഡിസിൻ സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്

ഇന്നലെ പട്ടാമ്പിയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരിൽ ഏഴു പേർ തൃശൂർ ജില്ലക്കാരും മൂന്നു പേർ മലപ്പുറം ജില്ലക്കാരുമാണ് രോഗ വ്യാപന നിയന്ത്രണത്തിന്റെ ഭാഗമായി പട്ടാമ്പി താലൂക്കിലും നെല്ലായ പഞ്ചായത്തിലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നിലവിൽ വന്നു രുദ കോഴിക്കോട് ജില്ലയിലെ കോവിഡ് സമ്പർക്ക വ്യാപനം മുൻ നിർത്തി ഹോട്ടലുകളിലും റസ്റ്ററന്റുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വിലക്കി റോഡ് വഴിയോര യോഗങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കൂടിച്ചേരലുകളും യോഗങ്ങളും നിരോധിച്ചു

നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവരെ വീടുകളിൽ ക്വാറന്റൈൻ ചെയ്യുകയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്യും

വില്ല്യാപ്പള്ളി ഗ്രാമ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും പെരുമണ്ണ ഗ്രാമ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും പൂവാട്ടുപറമ്പ് ഈസ്റ്റ് വാർഡും പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകളാണ്

സജിത് ബാബു ഉത്തരവിട്ടു

രുമ ഇടുക്കി ജില്ലാ ആസ്ഥാനമായ വാഴത്തോപ്പ് ഉൾപ്പെടുന്ന മേഖല കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു ഇവിടെ പ്രവർത്തിക്കുന്ന ആരോഗ്യം പൊലീസ് ഫയർ ആന്റ് റസ്ക്യൂ സിവിൽ സപ്ലൈസ് റവന്യൂ തദ്ദേശ ഭരണം വാട്ടർ അതോറിറ്റി കെ എസ്

രദേ കൊല്ലം ജില്ലയിൽ സമ്പർക്കം വഴി കോവിഡ് സ്ഥിരീകരിക്കുന്നവരിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയുളവാക്കുന്നു

നേത്ര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ രോഗിയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെത്തുടർന്നാണ് നേത്ര രോഗ വിഭാഗത്തിലെയും മെഡിസിൻ വിഭാഗത്തിലെയും ഡോക്ടർമാരോട് നിരീക്ഷണത്തിൽ കഴിയാൻ മെഡിക്കൽ ബോർഡ് ആവശ്യപ്പെട്ടത്

ഡോക്ടർമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു

അഭിഭാഷകർക്ക് കോവിഡ് കൊല്ലത്തെ സ്ഥിരീകരിച്ചതിനെത്തുടർന്ന് സിവിൽ സ്റ്റേഷനിലെ എല്ലാ കോടതികളും ഇന്നുമുതൽ നാലു ദിവസം അടച്ചിടാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി രുമ ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഒന്നര കോടിയോടടുക്കുന്നു

കോവിഡ് സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകാനും അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത്തരമൊരു പദ്ധതി ആവശ്യമാണെന്ന് രമേഷ് പൊക്രിയാൽ ട്വീറ്റ് ചെയ്തു

ജെ പി ഇന്ന് സംസ്ഥാനത്ത് കരിദിനം ആചരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം

ഇതേപ്പറ്റി സിനിമാ മേഖലയിലെ സംഘടനകൾ മറുപടി പറയണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

പീഡന വിവരം മറച്ചു വെച്ചതിന് അമ്മയെയും കേസിൽ പ്രതി ചേർത്തു